കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയ്ക്കിടെയാണ് ഇത്തവണ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളുണ്ടാകുമെന്നാണ് സൂചന

ന്യൂസ്ഡെസ്ക് ആകാശവാണി

തിരുവാഭരണത്തിനു കൂടുതൽ സുരക്ഷ ആവശ്യമെന്ന് സൂപ്രീംകോടതി പറഞ്ഞാൽ വേണ്ടതു ചെയ്യുമെന്നും ദേവസ്വം ബോർഡുമായി ആലോചിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു